നാളെ കെ

ജെ പി സംസ്ഥാന പ്രസിഡണ്ട് കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയ യാത്രയുടെ സമാപന സമ്മേളനം നാളെ വൈകിട്ട് ശംഖുമുഖത്ത് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും പ്രത്യേക വിമാനത്തിൽ ഇന്ന് വൈകിട്ട് ആറരയോടെ തിരുവനന്തപുരത്തെത്തുന്ന അമിത് ഷാ നാളെ രാവിലെ റോഡ് മാർഗം കന്യാകുമാരിയിലേക്ക് പോകും അവിടെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലും തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിപാടികളിലും പങ്കെടുത്ത ശേഷം അദ്ദേഹം പ്രചാരണ തിരുവനന്തപുരത്ത് മടങ്ങിയെത്തും തുടർന്ന് ബി ജെ പി കോർ കമ്മറ്റി യോഗത്തിലും അതിന് ശേഷം ശ്രീരാമകൃഷ്ണ മഠത്തിലെ സന്യാസി സംഗമത്തിലും അദ്ദേഹം സംബന്ധിക്കും വൈകിട്ട് അഞ്ചരയോടെയാണ് വിജയയാത്രയുടെ സമാപന സമ്മേളനത്തിൽ അമിത് ഷാ പങ്കെടുക്കുന്നത് കേന്ദ്രമന്ത്രിയായ ശേഷം ആദ്യമായി തിരുവനന്തപുരത്തെത്തുന്ന അമിത്ഷാക്കു വേണ്ടി പഴുതടച്ച സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പ്രമുഖ ദേശീയ സംസ്ഥാന നേതാക്കൾ തുടങ്ങിയവർ പരിപാടികളിൽ പങ്കെടുക്കും രും സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും അണിയറയിൽ പുരോഗമിക്കുന്നു

എമ്മിന്റെ സ്ഥാനാർത്ഥി നിർണയം ഏറെക്കുറെ പൂർത്തിയായെന്നാണ് റിപ്പോർട്ട് രണ്ടിലേറെ തവണ മത്സരിച്ച ആർക്കും ഇളവ് നൽകേണ്ടതില്ലെന്ന തീരുമാനത്തെ തുടർന്ന് അഞ്ചോളം മന്ത്രിമാർക്കും സ്പീക്കർക്കും അവസരം നൽകില്ലെന്നാണ് വ്യക്തമായ സൂചന

ഡി എഫിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ സ്ക്രീനിങ് കമ്മറ്റിയോഗം രാവിലെ ചേരും രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തോറ്റവർക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവർക്കും സീററ് നൽകേണ്ടതില്ലെന്നാണ് തീരുമാനം ഇന്നലെ ചേർന്ന ബി ജെ

ഇന്നത്തെ കോർകമ്മറ്റി യോഗം ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ദേശീയ നേതൃത്വത്തിന് ഇന്ന് കൈമാറിയേക്കുമെന്ന് റിപ്പോർട്ടുണ്ട് രംഭ ഡോളർകടത്തുമായി കസ്റ്റംസിന്റെ വെളിപ്പെടുത്തൽ ഗൌരമേറിയ വിഷയമാണെന്നും അതിനെ രാഷ്ട്രീയമായി ചിത്രീകരിക്കുന്നത് വിലപ്പോകില്ലെന്നും കേന്ദ്രമന്ത്രി വി

വസ്തുതകൾ തെളിയുന്നതുവരെ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് മാറിനിൽക്കുന്നതാണ് ജനാധിപത്യപരമായി ഉത്തമമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു

ജെപി കോർകമ്മറ്റി യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇതുവരെ പാർട്ടി ചർച്ചചെയ്തിട്ടില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കി

ജെ പി അജണ്ടകൾക്ക് അനുകൂലമായി അന്വേഷണ ഏജൻസികൾ പ്രവർത്തിക്കുന്നതിന്റെ ഫലമാണ് കസ്റ്റംസിന്റെ പുതിയ നീക്കമെന്ന് മന്ത്രി ഡോ

കസ്റ്റഡിയിൽ കഴിയുന്നവരെക്കൊണ്ട് നുണക്കഥകൾ പറയിപ്പിക്കുക യാണെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തുന്ന ഇത്തരം കള്ളപ്രചാരണങ്ങൾ ജനങ്ങൾ മുഖവിലയ്ക്ക് എടുക്കില്ലെന്നും ഡോ ജലീൽ മലപ്പുറത്ത് പറഞ്ഞു

ജെ പി സംസ്ഥാന പ്രസിഡണ്ട് കെ

പീരങ്കി മൈതാനിയിലെ പൊതുസമ്മേളനം കേന്ദ്രസഹമന്ത്രി അനുരാഗ് ഠാക്കൂർ ഉദ്ഘാടനം ചെയ്തു അഴിമതി കൊണ്ടും സ്വജനപക്ഷപാതം കൊണ്ടും വികസനം മുരടിച്ച നാടായി കേരളം മാറിയെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡണ്ട് കെ

ജില്ലാ തല സമാപന സമ്മേളനം ചാത്തന്നൂരിൽ അണ്ണാമലൈ ഐ

എസ് ഉദ്ഘാടനം ചെയ്തു

വിശദാംശങ്ങളുമായി നിമിഷ അരുൺ

ദര പോളിങ് ശതമാനം ഉയർത്താനും ബോധവൽക്കരണ പരിപാടി കൾ സംഘടിപ്പിക്കാനും തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ സ്വീപ്പ് വോട്ട് വണ്ടി ഇടുക്കി ജില്ലയിൽ രാവിലെ ജില്ലാ വരണാധികാരി എച്ച് ദിനേശൻ കലക്ടറേറ്റിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും രും മാതൃകാ പെരുമാറ്റച്ചട്ടം ഫലപ്രദമായി നടപ്പാക്കാനും പരാതികളിൽ അടിയന്തര പരിഹാരമുണ്ടാക്കാനും കണ്ണൂരിൽ മുഴുവൻ സമയ കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു ജില്ലയിലെ ഓരോ മണ്ഡലത്തിലും രണ്ട് വീതം ഫ്ളൈയിങ് സ്ക്വാഡിനെയും നിയോഗിച്ചിട്ടുണ്ട് രുഭ ഇടുക്കി ജില്ലയിൽ മുന്നണികളുടെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായി സ്ഥാനാർത്ഥി നിർണയം അവസാനഘട്ടത്തിലാണ് ആകാശവാണി പ്രതിനിധി ആന്റണി മുനിയറ

പ്രധാൻമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന യിലെ ഗുണഭോക്താക്കളുമായി നരേന്ദ്രമോദി ചടങ്ങിൽ സംവദിക്കുകയും ചെയ്യും

കോവിഡിന്റെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നാലിടങ്ങളി ലായാണ് ഇത്തവണ മേള ഒരുക്കിയത് തിരുവനന്തപുരം കൊച്ചി തലശ്ശേരി പാലക്കാട് എന്നിവിടങ്ങളിലായിരുന്നു കേരള രാജ്യാന്തര ചലച്ചിത്ര മേള

പാലത്തിന്റെ പുനർ നിർമ്മാണ പ്രവർത്തനങ്ങളും ഭാര പരിശോധനയും കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയായിരുന്നു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന തിനാൽ ആഘോഷ പരിപാടികൾ ഇല്ലാതെയായിരിക്കും പാലം തുറന്ന് കൊടുക്കുന്നത്

ആർ സി ക്ക് വേണ്ടി ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ് പാലം പുനർ നിർമ്മിച്ചത് രും വ്യാപാര പ്രമുഖനും മുത്തൂറ്റ് ഗ്രൂപ്പ് ചെയർമാൻ എം ജി ജോർജ്ജ് മുത്തൂറ്റ് നിര്യാതനായി

ഇന്നലെ രാത്രി ഡൽഹി കൈലാഷിലെ വീട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ഓർത്തഡോക്സ് സഭയുടെ മുൻ അൽമായ ട്രസ്ററി ആയിരുന്നു ജോർജ്ജ് മുത്തൂറ്റ്

എസ് എൽ ഫുട്ബാൾ സെമിയുടെ ആദ്യ പാദ മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സി എഫ് സി ഗോവ മത്സരം ഇരു ടീമുകളും രണ്ട് ഗോൾ വീതം അടിച്ച് സമനിലയിൽ പിരിഞ്ഞു രണ്ടാം പാദ സെമി തിങ്കളാഴ്ച നടക്കും ഇന്ന് രണ്ടാം സെമിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും എ ടി കെ മോഹൻ ബഗാനും ഏറ്റുമുട്ടും വൈകിട്ട് ഏഴരയ്ക്ക് ഗോവയിലാണ് മത്സരം രുര ഐ ലീഗ് ഫുട്ബാൾ സൂപ്പർ സിക്സിൽ ഗോകുലം കേരളയ്ക്ക് ജയത്തുടക്കം ഇന്നലെ പഞ്ചാബ് എഫ് സിയെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് ഗോകുലം തോൽപ്പിച്ചു

രും മൊബൈൽ ടവറുകളിൽ നിന്നുണ്ടാകുന്ന റേഡിയേഷൻ ആരോഗ്യത്തെ ബാധിക്കില്ല എന്നത് ശാസ്ത്രീയ വസ്തുതയാണെന്ന് ബി എസ് എൻ എൽ കൊച്ചി സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഡോ

തെറ്റിദ്ധാരണകൾ മൂലം പലയിടത്തും ടവർ നിർമ്മാണത്തെ പൊതുജനങ്ങൾ എതിർക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ റേഡിയോ ടെലിവിഷൻ എന്നിവയിൽ ഉപയോഗിക്കുന്നതിന് സമാനമായ നോൺ അയണൈസിങ് റേഡിയേഷനാണ് മൊബൈൽ സേവനങ്ങൾക്കായി ഉപയോഗിക്കു ന്നത്

ടി മാത്യു കൊച്ചി പി

ബി യുമായി ചേർന്ന് സംഘടിപ്പിച്ച വാർത്താ സമ്മേളന ത്തിൽ അറിയിച്ചു